ത സമൂഹത്തിന്റെ പൊതുതാൽപര്യം ഉൾകൊണ്ട് പ്രവർത്തിക്കാൻ രാഷ്ട്രീയ താൽപര്യംമൂലം ചിലർക്ക് സാധിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

കേരളത്തിൽ നിന്നുള്ള ആദ്യ ട്രെയിൻ ആലുവയിൽ നിന്ന് ഒഡീഷയിലേക്ക് പുറപ്പെട്ടു

വ്യോമയാന ഊർജ്ജ മേഖലകളിലെ പ്രകടനം അവലോകനം ചെയ്ത പ്രധാനമന്ത്രി സാമ്പത്തിക രംഗത്ത് ഈ മേഖലകളുടെ പ്രാധാന്യം എടുത്ത് പറഞ്ഞു

കാര്യക്ഷമത വർധിപ്പിക്കുന്നതിന് ദീർഘകാല പരിഷ്കരണ നടപടികളും ചർച്ചാ വിഷയമായി രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് തൊഴിലാളികളെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന കാര്യവും ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി ട്വിറ്ററിൽ അറിയിച്ചു ദേശീയ വിദ്യാഭ്യാസ നയം ഉൾപ്പെടെ വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തേണ്ട പരിഷ്കാരങ്ങളും പ്രധാനമന്ത്രി ചർച്ച ചെയ്തു

എല്ലാ സോണുകളിലും അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ വൈകുന്നേരം ഏഴു മണിമുതൽ രാവിലെ ഏഴു മണി വരെ പുറത്തിറങ്ങരുത്

ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന ട്രെയിൻ മെട്രോ റെയിൽ അന്തർ സംസ്ഥാന ബസ് സർവീസുകൾക്ക് വിലക്ക് തുടരും സ്കൂളുകൾ കോളജുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ട്രെയിനിങ് കോച്ചിങ് സെന്ററുകൾ തുടങ്ങിയവ അടച്ചിടണം സിനിമാ തിയറ്ററുകൾ ഷോപ്പിങ് മാളുകൾ ജിംനേഷ്യം സ്പോർട്സ് കോംപ്ലക്സുകൾ വിനോദ പാർക്കുകൾബാർ തുടങ്ങിയവ അടച്ചിടണം മത ചടങ്ങുകൾക്കും നിരോധനം തുടരും മത സ്ഥാപനങ്ങളും അടച്ചിടണം രേര റെഡ് സോണുകളിൽ ഓട്ടോ റിക്ഷ ടാക്സി അന്തർ ജില്ലാ ബസ് സർവീസ് ബാർബർ ഷാപ്പുകൾ എന്നിവയ്ക്ക് നിരോധനം തുടരും അത്യാവശ്യ കാര്യങ്ങൾക്ക് വാഹന ഗതാഗതത്തിന് അനുമതി നൽകും നാലു ചക്ര വാഹനങ്ങളിൽ ഡ്രൈവറെ കൂടാതെ രണ്ടു പേർക്ക് യാത്ര ചെയ്യാം ഇരുചക്ര വാഹനങ്ങളിൽ ഒരാൾക്ക് മാത്രമാണ് അനുമതി രുമ ഓറഞ്ച് സോണിൽ റെഡ് സോണിൽ പ്രഖ്യാപിച്ച ഇളവുകൾക്കു പുറമെ ഓറഞ്ച് സോണുകളിൽ ഉൾപ്പെട്ട ജില്ലകളിലേക്ക് പ്രത്യേക അനുമതിയോടെ യാത്ര ചെയ്യാം നാല് ചക്രവാഹനങ്ങളിൽ ഡ്രൈവർക്ക് പുറമെ പരമാവധി രണ്ട് യാത്രക്കാരെ മാത്രമേ അനുവദിക്കൂ

ഡ്രൈവർക്ക് പുറമേ ഒരു യാത്രക്കാരനെ മാത്രം ഉൾക്കൊള്ളിച്ച് ടാക്സി കാബ് സർവീസുകൾക്ക് അനുമതി നൽകും

രുമ സമൂഹത്തിന്റെ പൊതുതാത്പര്യം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ രാഷ്ട്രീയ താത്പര്യം മൂലം ചിലർക്ക് സാധിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ പ്രയാസത്തിലാകുന്ന സ്ഥിതിയിലാണ് ജീവനക്കാരുടെ ശമ്പളം മാറ്റിവയ്ക്കാൻ തീരുമാനിച്ചതെന്നും ലോക്ഡൌൺ ദീർഘകാലത്തേക്ക് നീട്ടുന്നത് സംസ്ഥാനത്തിന്റെ വ്യവസ്ഥയ്ക്ക് സമ്പദ് ആഘാതമേൽപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സമൂഹ മാധ്യമം വഴിയുള്ള സിപി ഐ എം ആശയ പ്രചരണ പരിപാടിയുടെ ഉദ്ഘാടനം ഫേസ്ബുക്ക് ലൈവിലൂടെ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി രുമ ലോക്ക്ഡൌണിനെ തുടർന്ന് വിവിധ പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന കുടിയേറ്റ തൊഴിലാളികൾ തീർത്ഥാടകർ വിനോദ സഞ്ചാരികൾ വിദ്യാർഥികൾ തുടങ്ങിയവരെ നാട്ടിലെത്തിക്കാൻ ശ്രമിക് പ്രത്യേക ട്രെയിനുകൾഓടിത്തുടങ്ങി

ഒമ്പതു പേർ രോഗമുക്തരായതായി മന്ത്രി കെ

കണ്ണൂർ കാസർകോട് ജില്ലകളിൽ നാല് പേർ വീതവും എറണാകുളത്ത് ഒരാളുമാണ് രോഗമുക്തി നേടിയത്

കോഴിക്കോട് ജില്ലാ തല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി

വോയ്സ് രുഭ കോട്ടയം ജില്ല റെഡ്സോണിൽ തുടരുമെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ജില്ലയിൽ കനത്ത ജാഗ്രത തുടരുന്നു ഗവൺമെന്റ് നിർദേശങ്ങൾ അനുസരിച്ച് അതിഥി തൊഴിലാളികൾക്ക് നാട്ടിലേക്ക് മടങ്ങാൻ സൌകര്യം ഒരുക്കുമെന്ന് കലക്ടർ പി

അതിനിടെ കഴിഞ്ഞ നാലു ദിവസമായി ജില്ലയിൽ കോവിഡ് പോസിറ്റീവ് കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല

തുടർച്ചയായ മൂന്നു ദിവസമായി ജില്ലയിൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല

എ കേസുമായി ബന്ധപ്പെട്ട് എൻ ഐ എ സംഘം കോഴിക്കോട് രണ്ടിടങ്ങളിൽ പരിശോധന നടത്തി രണ്ട് പേരെ ചോദ്യം ചെയ്തു അന്വേഷണം തുടരുമെന്നും എൻ ഐ എ വ്യക്തമാക്കി രുദ സംസ്ഥാനത്ത് രണ്ട് ഘട്ടമായി കേന്ദ്ര ഗവൺമെന്റിന്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിച്ച് മത്സ്യബന്ധനത്തിനും വിപണനത്തിനും ഇളവുകൾ അനുവദിച്ച് ഉത്തരവായി

രാത്രിയും പകലും പ്രത്യേക നിരീക്ഷണങ്ങൾക്ക് പുറമെ ഡ്രോൺ ക്യാമറ ട്രാപ്പ് തുടങ്ങിയ നൂതന സംവിധാനങ്ങൾ ഉപയോഗിച്ച് പഴുതുകൾ അടച്ചുള്ള നിരീക്ഷണങ്ങളാണ് നടത്തുന്നത് രമ കോവിഡ് ലോക്ഡൌണിനെ തുടർന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് മടങ്ങിവരുന്നതിനായി നോർക്ക വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം അഞ്ചു ലക്ഷം കവിഞ്ഞു